കോവിഡ് വ്യാപനം വിലയിരുത്താട്ടിനെത്തിയ കേന്ദ്ര സംഘം ഇന്ന് കോട്ടയം പര്യട്നിത്തിൽ

സംസ്ഥാനത്തെ ി സ്കൂളുകൾക്ക് നിർമ്മിച്ച ഹൈടെക് കെട്ടിടങ്ങൾ മുഖ്യമന്ത്രി നാളെ നാടിന് സമർപ്പിക്കും

എസ് എൽ ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരൂ ചെന്നൈയിൻ എഫ്

മത്സരം

പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ്വ് ബാങ്ക് നടപ്പു സാമ്പത്തിക വർഷത്തെ അവസാന ദൈമാസ പണനയം പ്രഖ്യാപിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസമായി മുംബൈയിൽ നടന്ന പണനയ അവലോകനത്തിന് ശേഷമാണ് ആർ

ഐ

ഇത് നാലാം തവണയാണ് നിരക്കുകൾ അതേപടി നിലനിർത്തുന്നത്

ചരക്കു നീക്കങ്ങളും ആഭ്യന്തര വൃാപാര പ്രവർത്തനങ്ങളും ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലാണെന്നും വിപണിയിൽ പണലഭ്യത സാധാരണ നിലയിലെത്തിക്കുമെന്നും ആർ

ഐ ഗവർണർ അറിയിച്ചു

കോട്ടയം ജില്ലയിലെ കോവിഡ് വ്യാപന സ്ഥിതി വിലയിരുത്തിയതിന് ശേഷം സംഘം തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു

ക്യാന്റീൻ തെരഞ്ഞെടുപ്പിന് ശ്രേഷ്മാണ് സെക്രട്ടേറിയറ്റിൽ കോവിഡ് വ്യാപിച്ചതെന്ന് പ്രതിപക്ഷ് സംഘടന ആരോപിച്ചു

ഏറിയ പങ്ക് അപേക്ഷകൾക്കും അദാലത്ത് കേന്ദ്രങ്ങളിൽ തന്നെ പരിഹാരമായതായി മന്ത്രി ടി

പ്രതീക്ഷിച്ചതിലും മികച്ച് രീതിയിൽ അദാലത്ത് ആസൂത്രണം ചെയ്യാൻ കഴിഞ്ഞതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു

അംഗം ബിനോയ് വിശ്വം രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ശ്രീ

ഓർഡിനൻസിലൂടെ കാർഷിക ബില്ല് കൊണ്ടുവന്നതിനെ കുറിച്ച് കോൺഗ്രസ് എം

കാർഷിക നിയമങ്ങൾ പിൻവലിച്ച് നിലവിലെ പ്രതിസന്ധിക്ക് അനുയോജ്യമായ പരിഹാരം കാണണമെന്ന് മിക്ക പ്രതിപക്ഷ പാർട്ടികളും കേന്ദ്രത്തോട് ആവശ്യമുന്നയിച്ചു

എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആരോഗൃമന്ത്രി കെ

സംസ്ഥാനത്തെ എല്ലാ നവജാത ശിശുക്കൾക്കും മുലപ്പാൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്ലദ്ധതി നടപ്പാക്കുന്നത്

മൊബൈൽ ആപ്പ് വഴി വായ്പാ തട്ടിപ്പ് നടത്തുന്ന പ്പെട്ഘത്തെ പിടികൂടാൻ് സി ബി ഐ സഹായത്തോടെ ക്രൈം ബ്രാഞ്ച് അന്വേഷണം നടക്കുന്നതായും അദ്ദേഹം അറിയിച്ചു സൈബർ ഡോം ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ഓൺലൈനായി നിർവ്വഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഓപ്പറേഷൻ പി ഹണ്ട് വഴി കുട്ടികൾക്കെതിരെയുള്ള ഓൺലൈൻ ലൈംഗികാതിക്രമങ്ങൾ തടയാൻ നേതൃത്വം നൽകി യതും സൈബർ ഡോമാണ്

വിശദാംശങ്ങളുമായി പ്രവീണ

പൊതു വിദ്യാഭ്യാസ സംരക്ഷണ് യജ്ഞത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ സ്കൂളുകൾ ഹൈടെക്കാക്കുന്ന പദ്ധതി പരിപാടി പുരോഗമിക്കുകയാണ്

മന്ത്രി സി രവീന്ദ്രനാഥ് അധ്യക്ഷനാകും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പിയുടെ മുദ്രാവാക്യം സി

ഐ എം ഏറ്റുപിടിക്കുന്നതായി പ്ഷതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ക്ടോൺഗ്രസിൽ അധിഷ്ഠിതമായ ഭാരതമാണ് ജനങ്ങൾ ആഗ്രഹീക്കുന്നത് വികസനത്തിനെ കുറിച്ച് പറയാനില്ലാതെ സി

എറ്റ് വിഭാഗീയത പ്രചരിപ്പിക്കുന്നു സംസ്ഥാന സർക്കാർ ക്ട്രിളിത്ത തകർത്തെന്ന് ശ്രീ ചെന്നിത്തല ഐശ്വര്യ കേരള യാത്രാമ്ട്രേയ് മലപ്പുറത്ത് പറഞ്ഞു

സി യെ നോക്കുകുത്തിയാക്കി അനധികൃത നിയമനം തകൃതിയെന്ന് ബി

സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ

സർക്കാരിന്റെ അവസാന കാലത്ത് പാർട്ടി പ്രവർത്തകരുടെ ഭാര്യമാർക്ക് നിയമനം നൽകുന്നു അനധികൃത നിയമനത്തിനെ നിയപരമായി നേരിടുമെന്നും ഇതിനെതിരെ യുവമോർച്ച സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

സുരേന്ദ്രൻ പറഞ്ഞു

നേരത്തെ ടോസ് നേടിയ ഇംഗ്ലണ്ട് നായകൻ ജോ റൂട്ട് ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു കോവിഡ് കാലത്തെ അടച്ചുപൂട്ടലിന് ശേഷം രാജ്യത്ത് നടക്കുന്ന ആദ്യ ടെസ്റ്റ് പരമ്പരയാണിത്

നാല് മത്സരങ്ങളടങ്ങുന്നതാണ് പരമ്പര പരമ്പര വിജയികൾ ജൂണിൽ നടക്കുന്ന ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽസിൽ ന്യൂസിലന്റുമായി ഏറ്റുമുട്ടും

ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ് ഇന്ന് ബംഗളൂരു എഫ്

ചെന്നൈയിൻ എഫ്

ഇന്നലെ ന്ട്ടുന്ന് മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും എഫ്

ഇരു ടീമുകളും രണ്ട് ഗോൾ വീത്ം നേടി ഇതോടെ ഗോവ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാന്ത്തെത്തി

വ്യാജ വാർത്ത നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി പരീക്ഷ കൂടാതെ എട്ട് ലക്ഷം തസ്തികകളിലേക്ക് നേരിട്ട് നിയമനം നടത്തുന്നുവെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സന്ദേശം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി ഇതുവരെ ഇത്തരം പരസ്യങ്ങൾ നൽകിയിട്ടില്ലെന്ന് പി

കലാമണ്ഡലം തൃശൂർ കലാമണ്ഡലത്തിൽ നടത്താനിരുന്ന പുരസ്കാര സമർപ്പണവും ഫെല്ലോഷിപ്പ് എൻഡോവ്മെന്റ് വിതരണവും മാറ്റിവച്ചു